എൽ

സുപ്രീംകോടതി വിധി ഇന്ന് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിന് നിർണായകം

അസമിലും ബീഹാറിലും പ്രിച്ചുയക്കെടുതികൾ രൂക്ഷം

വിവിധ ജില്ലകളിൽ ശനിയാഴ്ചവരെ ജാഗ്രതാ നിർദ്ദേശം

കുൽഭൂഷൺ ജാദവ് കേസിൽ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ന് വിധി പറയും

ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണ് ഇന്ന് തുടക്കം ഇന്ത്യൻ പ്രതീക്ഷകളായി പി

സിന്ധുവും കിഡംബി ശ്രീകാന്തും

എൽ എ മാരുടെ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും

എൽ എ മാരെ അയോഗ്യരാക്കുന്ന കാര്യത്തിലും രാജി കാര്യത്തിലും നിയമസഭാ സ്പീക്കർ തീരുമാനമെടുക്കുമെന്ന് ഇന്നലെ കേസിൽ സ്പീക്കർക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ എ

എന്നാൽ തൽസ്ഥിതി തുടരണമെന്ന നേരത്തേയുള്ള കോടതിയുടെ നിർദ്ദേശം മാറ്റണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ധ്യക്ഷനായ ബെഞ്ചിൽ സിങ്വി ആവശ്യപ്പെട്ടു വിമത എം എൽ എ മാരുടെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്ന് എം എൽ

ഇവരെ അയോഗ്യരാക്കുന്നത് സംബ ന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കാവുന്നതാണെന്നും അദ്ദേഹം കോട തിയെ അറിയിച്ചു അതിനിടെ ഭരണഘടനാനുസൃതം തീരുമാനമെടുക്കു മെന്ന് നിയമസഭാ സ്പീക്കർ കെ

സുപ്രീംകോടതി വിധി വന്നതിനുശേഷം ഇക്കൂാര്യത്തിൽ പ്രതികരിക്കാ മെന്ന് അദ്ദേഹം ബംഗളുരുവിൽ പറഞ്ഞു ്ട് ജന്റ്താദൾ എസ് കോൺഗ്രസ്സ് കൂട്ടുകക്ഷി മന്ത്രിസഭ നാട്ട്ള് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും

രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ പകുതിയെങ്കിലും ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുകയാണ് ഗവൺമെന്റ് ലക്ഷ്യ മെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭ നേരത്തേ പാസ്സാക്കി യിരുന്നു ആന്ധ്രാപ്രദേശിൽ കേന്ദ്രസർവകലാശാലയും കേന്ദ്ര ആദി വാസി സർവകലാശാലയും സ്ഥാപിക്കുന്നതിന് നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നു

ചീഫ് ജസ്റ്റിസ് ഡി എൻ പട്ടേലും ജസ്റ്റിസ് സി ഹരിശങ്കറുമടങ്ങുന്ന ഡിവിഷ്ട്രൂ ബെഞ്ചാണ് കേസ് പരി ഗണിച്ചത്

അതിനിടെ ഇലക്ഷൻ തിരിച്ചറിയൽ രേഖ്യെ ആധാറുമായി ബന്ധി പ്പിക്കുന്നത് സംബന്ധിച്ച് അഭിഭാഷ്ക്കുനു്ർ ബിജെപി നേതാവുമായ അശ്വനി ഉപാധ്യായ സമർപ്പിച്ച മുറ്റൊരു ഹർജിയിൽ എട്ടാഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കാൻ ക്ട്രേന്ദ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതി നോട്ടീസ് അയ്ക്ക് ഉത്തരവായി

ടി

ടി

ഇത്തരം ഫോറങ്ങളിൽ വൻ തോതിൽ മാറ്റം വരുത്തിയെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത

അടിസ്ഥാനതലത്തിൽ നിലവിലുള്ള ഡിജിറ്റൽ സേവനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ലക്ഷ്യം നേടിയെടുക്കാനാവുമെന്ന് ഗ്രാമതല വനിതാ സംരംഭകർക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാലയെ അഭിസംബോധന ചെയ്യവേ കേന്ദ്രമന്ത്രി പറഞ്ഞു സ്വാശ്രയ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു

ദേശീയ ദുരന്ത പ്രതികരണസേനയുടെ നേതൃത്വത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തന ങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്

ഗുവാഹത്തിയിൽ പ്രളയക്കെടുതി വിലയിരുത്തിയശേഷ്ട് പ്പാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹിക്കു പ്രള്യക്കെടുതി സംബന്ധിച്ച് വിശ ദമായ റിപ്പോർട്ട് ഇന്ന് പ്രധാനമന്ത്രി ന്രേന്ദ്രമോദിക്ക് സമർപ്പിക്കുമെന്നും ശ്രീ

നേരത്തെ വിവിധ പ്രളയബാധിത പ്രദേശങ്ങളീൽ പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം നടത്തി

ഒരു ലക്ഷത്തിലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാ ണ്

ദുരിതബാധിതർക്ക് എല്ലാ സഹായവും എത്തിക്കുമെന്നും മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നലെ നിയമസഭയിൽ വൃക്തമാക്കി വിള നഷ്ടത്തിനുൾപ്പെടെ ജനങ്ങൾക്ക് നേരിട്ട എല്ലാ ദുരിതത്തിനും മതിയായ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്താകെ വിവിധ ജില്ലകളിൽ ഇന്ന് മുതൽ ശനിയാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെ ടുവിച്ചിട്ടുണ്ട് അതിമഴ പ്രതീക്ഷിക്കുന്ന നാളെ വരെ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്

ഇന്ത്യൻ താരം പി

സിന്ധുവിന്റെ ഓപ്പണിംഗ് മത്സരം നാളെ ജപ്പാന്റെ അയ ഒഹോരിയുമായാണ് സൈന്റ് നെഹ്വാൾ ഇക്കുറി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല

എല്ലാവിധ സ്ത്രങ്കർച്ചങ്ങളോടും കൂടിയ സംസ്ഥാനത്തെ ആദ്യ അന്താരാഷ്ട്ര നില്ല്പികൃത്തിലുള്ള കായിക സർവകലാശാല യായിരിക്കുമെന്ന് കായിക്മന്ത്രി അനിൽവിജ് അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

എന്നാൽ ഇന്ത്യയുടെ ഹർജ്ജി പരിഗണിച്ച് വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർത്തിവച്ചു

ഇരുഭാഗത്തിന്റെയും വാദം ഫെബ്രുവ രിയിൽ പൂർത്തിയായി തുടർന്ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു

നാണയനിധി എക്സിക്യുട്ടീവ് ബോർഡ് ലഗാർഡേയുടെ രീജി അംഗീകരിച്ചു

ലഗാർഡേയുടെ അപേക്ഷ യൂറോപ്യൻ കൌൺസിൽ അറ്റുട്ടീകരിച്ചാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അധ്യക്ഷ പദ്ധിയില്ലെത്തുന്ന ആദ്യ വനിതയാകും അവർ

ഭീകരതയെ ചെറുക്കുന്നതിനുള്ള പ്രവർത്തന ങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുക വിവരങ്ങൾ പങ്കുവയ്ക്കുക മികച്ച നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ചർച്ച യിൽ ഉൾപ്പെടുത്തിയിരുന്നു

വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പുമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ട്വിറ്ററിലൂടെ അഭിനന്ദനം അറിയിച്ചു

റിഥി സെൻ മികച്ച നടനും പ്രബുദ്ധാ ബാനർജി മികച്ച സംഗീതജ്ഞനുമുള്ള പുരസ്കാരവും നേടി